റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

ഐ

വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മത്സരം ഇന്ന് കട്ടക്കിൽ ജയിക്കുന്ന ടീമിന് പരമ്പര

ജെ പി സംഘടിപ്പിക്കുന്ന റാലിയിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പടെയുള്ളവർ പങ്കെടുക്കും വിശദാംശങ്ങളുമായി പ്രിയ

ജെ പി അധ്യക്ഷൻ മനോജ് തിവാരി അറിയിച്ചു

ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൃാബിനറ്റ് മന്തിമാർ ഉൾപ്പടെയുള്ളവരും ബി ജെ

ഇക്കഴിഞ്ഞ സമ്മേളനത്തിലാണ് അനധികൃത കോളനി നിവാസികൾക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന ബിൽ പാർലമെന്റ് പാസ്റ്റാക്കിയത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിദ്യാർത്ഥികളെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അതിനിടെ മംഗളൂരുവിൽ ഇന്ന് രാവിലെ ആറുമണിമുതൽ വൈകിട്ട് ആറുമണി വരെ കർഫ്യൂവിന് ഇളവ് നൽകി എന്നാൽ ബംഗളൂരുവിൽ നിരോധനാജ്ഞ തുടരും

ഐ എം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മന്ത്രാലയം ടിറ്ററിലൂടെ വൃക്തമാക്കി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങളിൽ പങ്ക് വയ്ക്കുന്ന പോസ്റ്റുകൾ നിരീക്ഷിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചതായുള്ള മാധ്യമവാർത്തകളെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം വസ്തുതകൾ ശരിയായി വിലയിരുത്താതെ വാർത്തകൾ നൽകുന്നത് ശരിയല്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

പ്രസ്താവനയിൽ ഒപ്പിട്ടവരിൽ രാജ്യസഭാംഗം സ്പൻ ദാസ്ഗുപ്ത ഷിഷിർ ബജോരിയ ഷില്ലോംഗ് ഐ ഐ എം ചെയർമാനായ സുനൈന സിംഗ് നളന്ദ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജെ

സംയമനം പാലിക്കണമെന്നും സംഘടിത പ്രക്ടിരണങ്ങൾക്കും വർഗ്ഗീയതയുടേയും അരാജകത്വത്തിന്റെയും കെണിയിൽ വ്വീഴരുതെന്നും സമൂഹത്തിലെ എല്ലാ മേഖലകളിലുള്ളവരോടും ഇവർ അഭ്യർത്ഥിച്ചു

പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശൃപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആഗസ്റ്റ് ക്രാന്തി മൈതാനിയിൽ റാലി സംഘടിപ്പിച്ച് രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് ബില്ലിനെ പിന്തുണച്ച് റാലി സംഘടിപ്പിച്ചത് സൻവിദാൻ സൻമാൻ മാച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു റാലി

ജെ

പി വർക്കിംഗ് പ്രസിഡന്റ് ജെ

ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച ധാരണയായത്

ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും ചൈനീസ് സംഘത്തെ ചൈനീസ് വിദേശകാരൃമന്ത്രി വാങ്യീയുമാണ് നയിച്ചത് ഇന്ത്യാ ചൈന ബന്ധം ശക്തമായി നിലനിർത്തിക്കൊണ്ടുതന്നെ അതിർത്തി ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് ഇരു രാജ്യങ്ങളും ഊന്നൽ നില്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

അതിർത്തിയിലെ സമാധാനം നിലനിർത്താനും ഉഭയിക്ക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മേഖലയിലെയും ആഗോള തലത്തിലുമുള്ള വികസപ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജയ്ശങ്കർ ദിദിന സന്ദർശനത്തിനായി ഇന്ന് ഇറാനിലേക്ക് പോകും

ഇറാൻ വിദേശകാര്യ മന്ത്രി മുഹമ്മദ് ജവാദ് സാരിഫുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുമായും ശ്രീ

ഛാബഹാർ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിൽ ചർച്ചാ വിഷയമാകും

ടെലിവിഷൻ സംവാദ പ്പരിപാടിയായ മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു അടിസ്ഥാനമായ വ്യവസ്മൃങ്ങൾക്ക് യോഗ്യരായവരെ ലഭ്യമാക്കുന്നതിന് ഉന്നതവിദ്യാഭ്യാസ മേഖലയിൽ പരിവർത്തനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർമ്മിതബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന മേഖലകളിൽ യോഗ്യരായ ആളുകളെ കേരളത്തിൽ തന്നെ വളർത്തിയെടുക്കാനാകണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

രാജ്യത്ത് പരിഷ്കരണ നടപടികളിലുണ്ടായ പോരായ്മ പരിഹരിച്ച് വികനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

സാമ്പത്തിക വളർച്ചയും സാമൂഹിക സ്വാതന്ത്ര്യവും ഈ പരിവർത്തനത്തിന് ആക്കംകൂട്ടി

ഇത് തുടർച്ചയായ ഒൻപതാം തവണയാണ് ഹസീന പാർട്ടി അദ്ധ്യക്ഷയാകുന്നത്

സ്വന്തം നാട്ടിൽ പരമ്പര സ്വന്തമാക്കിയാൽ ഇന്ത്യയ്ക്ക് അ്ത് നെട്ടമാണ്

മത്സരത്തിന്റെ ദൃക്ഷിസാക്ഷി വിവരണം ആകാശവാണി ഉച്ചയ്ക്ക് ഒരു മണിമുതൽ പ്രക്ഷേപണം ചെയ്യും

വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ആവശ്യം കണക്കിലെടുത്താണ് മെട്രോ കോർപറേഷന്റെ ഈ നടപടി